വോട്ടെടുപ്പ് ബുധനാഴ്ച

ഇന്ത്യയ്ക്കാർക്ക് ആറുമാസം തടവ്

വിവിധ രാഷ്ട്രീയ പാർട്ടി നേതൃക്കൾ ഇ്രു സംസ്ഥാനങ്ങളിലും പ്രചരണ രംഗത്ത് സജീവമായിരുന്നു മധ്യപ്രദേശിൽ ബി ജെ പി യ്ക്കുവേണ്ടി പ്രധാനമന്ത്രി നീർന്ദ്രമോദി കേന്ദ്ര മന്ത്രിമാരായ രാജ്നാഥ്സിംഗ് സ്മൃതി ഇറാനി കോൺഗ്രസിനുവേണ്ടി കമൽനാഥ് ജ്യോതിരാദിത്യ സിന്ധ്യ ദിഗ്വിജയ് സിംഗ് സമാജ്വാദി പാർട്ടി പ്രതിനിധി അഖിലേഷ് യാദവ് തുടങ്ങിയവർ അവസാന ദിവസമായ ഇന്ന് പ്രചാരണത്തിനെത്തുന്നുണ്ട്

തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തെലങ്കാന രാജസ്ഥാൻ എന്നിവിടങ്ങളിലും തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു

വെങ്കയ്യനായിഡു ഇന്ന് തറക്കല്ലിടും പഞ്ചാബിലെ ഗുർദാസ്പൂർ ജില്ലയിലെ മാൻ ഗ്രാമത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര മന്ത്രിമാരായ നിതിൻ ഗഡ്കരി ഹർസിമ്രത് കൌർബാദൽ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് എന്നിവർ പങ്കെടുക്കും കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

ഇടനാഴിയുടെ പാകിസ്ഥാനിലെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനായി കേന്ദ്രമന്ത്രിമാരായ ഹർസിമ്രത് കൌർ ബാദലും ഹർദീപ് പുരിയും മറ്റന്നാൾ പാക്കിസ്ഥാനിലേക്ക് യാത്രതിരിക്കും പരിപാടിയിൽ പങ്കെടുക്കാനായി കേന്ദ്ര മന്ത്രിമാരെ അയയ്ക്കാനുള്ള ഇന്ത്യൻ തീരുമാനത്തെ പാക്കിസ്ഥാൻ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇരു രാജ്യങ്ങളിലെയും സിഖ്സമുദായങ്ങളെ കൂടുതൽ അടുപ്പിക്കാനുള്ള പാക് ശ്രമങ്ങൾക്ക് ഇന്ത്യ നൽകിയ പ്രതികരണം പ്രതീക്ഷ നൽകുന്നതാണെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷി പറഞ്ഞു ന്യൂസ് ഡസ്ക് ആകാശവാണി

സ്ഫോടനത്തിന് ആവ്ശ്യമായ ബോംബ് എത്തിച്ചു നൽകിയെന്നും സംഭവ ക്രിമയ്ത്ത് ഇയാൾ അവിടെ ഉണ്ടായിരുന്നുവെന്നു് ദേശീയ അന്വേഷണ ഏജൻസി നേരത്തെ കണ്ടെത്തിയിരുന്നു

നിലമാഡ്ഗു കൊറിൻജഡ് വനപ്രദേശത്താണ് സംഭവം കൊല്ലപ്പെട്ട നക്സലുകളിൽ നിന്ന് ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ബോർജെ ഗ്രാമത്തിലും ഏറ്റുമുട്ടൽ നടന്നതായി പോലീസ് അറിയിച്ചു

നാലുദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ അബ്ദുള്ള ഷാഹിദ് നാളെ രാഷ്ട്രപതി രിന്റെ നാഥ് കോവിന്ദുമായി കൂടിക്കാഴ്ച നടത്തും

നാലു ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത് ദേശീയ സുരക്ഷാ ഏജൻസിയുടെ ഉപമേധാവിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ അറിയിച്ചു ഇന്ത്യ റൊമേനിയ നയതന്ത്രബന്ധം എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനം

വ്യാഴാഴ്ച വരെ നീളുന്ന സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പ്രതിരോധ മേഖലയിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുക പ്രതിരോധ സഹകരണത്തിന് പുത്തൻ വേദികൾ കണ്ടെത്തുക എന്നിവ ലക്ഷ്യം വച്ചുള്ളതാണ് റഷ്യൻനാവികസേനാ മേധാവി വ്ളാഡിമിർ കൊറോലേവു മായി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അദ്ദേഹം ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും

സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ നാളെ സഭാംഗമായിരുന്ന പി ബി അബ്ദുൾ റസാക്കിന്റെ നിര്യാണത്തിൽ ചരമോപചാരം അർപ്പിച്ച് സഭ പിരിയും

മന്ത്രിസഭയിലെ പുതിയ അംഗമായി കെ കൃഷ്ണൻകുട്ടി നാളെ സത്യപ്രതിജ്ഞ ചെയ്തേക്കും മാത്യു ടി തോമസ് രാജിക്കത്ത് കൈമാറിയതിനുശേഷമായിരിക്കും ഔദ്യോഗിക തീരുമാനം മാത്യു ടി തോമസ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ തന്നെയായിരിക്കും കൃഷ്ണൻകുട്ടിക്കുമുണ്ടാകുക

സന്നിധാനത്തെ അലോപ്പതി ഹോമിയോ ആശുപത്രികളിൽ ചികിൽസ തേടിയെത്തിവരെ ബാധിച്ചിരിക്കുന്നത് സാധാരണ പനിയാണ്

വൺ ബാധ കണ്ടെത്തിയിട്ടില്ലെന്നും മെഡിക്കൽ ഓഫീസർമാർ അറിയിച്ചു പകർച്ചപ്പനിക്ക് ഫലപ്രദമായ പ്രതിരോധ മരുന്നുവിതരണം ഹോമിയോ ആശുപത്രികളിൽ നടക്കുന്നുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു

പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ ഭാരത് പെട്രോളിയം ഒ

സി യുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ വഴിയാണ് പമ്പുകൾ തുടങ്ങുകയെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഉദ്യോഗസ്ഥൻ പാർത്ഥ് വോറ മുംബൈയിൽ അറിയിച്ചു

വിശദാംശങ്ങളുമായി കരോൾ എബ്രഹാം

അംബേദ്ക്കറിന്റെ നേതൃതിത്തിലായിരുന്നു ഭരണഘടനാ രൂപീകരണത്തിനു തുടക്കുമിട്ടത്

ഭരണഘടനാ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്നലെ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ഒരുക്കിയ അത്താഴവിരുന്നിൽ പങ്കെടുത്തു ബംഗ്ലാദേശ് മ്യാൻമർ തായ്ലന്റ് നേപ്പാൾ ഭൂട്ടാൻ എന്നീ അയൽരാജ്യങ്ങലിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസുമാരും ജഡ്ജിമാരും വിരുന്നിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജെ ടി ഹാളിൽ സ്പീക്കർ പി